അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

കേര്ളത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയു പ്പിരിധി അവസാനിച്ചു

സുൽത്താൻ ഖാബൂസ് ബിൻ സെയിദ് അൽ സെയ്ദിന്

മികച്ച നടനുള്ള പുരസ്ക്കാരം മനോജ് ബാജ്പേയും ധനുഷും പങ്കിട്ടു

ലോക ജല ദിനമായ ഇന്ന് കൃാച്ച് ദ റെയിൻ കൃാമ്പയിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കൂടുതൽ വിവരങ്ങളുമായി പ്പിയ സുബ്ബലക്ഷ്മി

വെള്ളം പണത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിൽ നമുക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മഴവെള്ളം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്താൽ ഭൂഗർഭ ജല വിനിയോഗം കുറയ്ക്കാൻ സാധിക്കുമെന്നും ശ്രീ മോദി ഓർമ്മിപ്പിച്ചു ക്യാച്ച് ദി റെയിൻ പോലുള്ള കൃാമ്പയിനുകൾ വിജയകരമായി നടപ്പാക്കുന്നതിലൂടെ കൂടുതൽ ജലം സംഭരിക്കാൻ കഴിയും അതുവഴി വരൾച്ചയുടെ ആഘാതം പരിമിതപ്പെടുത്താൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സാന്നീധ്യത്തിൽ കേന്ദ്ര ജൽശക്തി മന്ത്രിയും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലേയും മുഖ്യമന്ത്രിമാരും തമ്മിൽ കെൻ ബെത്ച നദീസംയോജന പദ്ധതി നടപ്പാക്കാനുളള ചരിത്രപരമായ കരാറിൽ ഒപ്പ് വച്ചു

നദീസംയോജനവുമായി ബന്ധപ്പെട്ട് വിപുലമായ കാഴ്ച്ചപ്പാടോടെ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന ആദ്യ പദ്ധതികളിൽ ഒന്നാണ് കെൻ ബെത്വ ലിങ്ക് പദ്ധതി

ജലത്തിന്റെ ദുരുപയോഗം സ്ഥിതി കൂടുതൽ മോശമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആഹ്വാനം ചെയ്ത കാച്ച് ദ റെയ്ൻ ക്യാമ്പെയിനിൽ എല്ലാവരും ഭാഗമാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ സംബന്ധിച്ചു തൃണമൂൽ കോൺഗ്രസ്സ് പ്രസിഡന്റും സംസ്ഥാന മുഖൃമന്ത്രിയുമായ മമത ബാനർജി വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു അതിനിടെ ബംഗാളിലെ ബി ജെ

അസമിലെ പ്രകടന പത്രിക പാർട്ടി ദേശീയ അദ്ധ്യക്ഷൻ ജെ

നദ്ദ നാളെ പുറത്തിറക്കും

ചില ജില്ലകളിൽ ഇരട്ട വോട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ വൃക്തമായതായി അദ്ദേഹം പറഞ്ഞു കോവിഡ് സാഹചര്യത്തിൽ ബൂത്തുതല ഉദ്യോഗസ്ഥർക്ക് വീടുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്താൻ കഴിയാത്തതും സോഫ്റ്റുവെയറിലെ പിഴവുകളും വോട്ട് ഇരട്ടിക്കുന്നതിന് കാരണമായെന്നും തെരെഞ്ഞെടുപ്പ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടി തെരെഞ്ഞെടുപ്പിന് മുമ്പ് പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാരാണ് ഉളളത് എന്ന് ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വൃക്തമാക്കി

രണ്ട് ഡോസുകൾക്കിടയിലുള്ള പുതുക്കിയ ഇടവേള കോവിഷീൽഡ് വാക്സിനു മ്ാത്രമ്മേ ബാധകമാവൂ എന്നും കേന്ദ്രം അറിയിച്ചു

ഒരു റിപ്പോർട്ട്

കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് നാഷണൽ ബാങ്ക് ഫോർ ഇൻഫ്രാസ്ട്രകച്ചർ ആന്റ് ഡെവലപ്മെന്റ് ബില്ലും ലോക്സഭയിൽ അവതരിപ്പിച്ചത് അടിസ്ഥിന്റെ സൌകര്യ മേഖലയുടെ വികസനത്തിന് ധനസഹായം ലഭ്യമിക്ക്കാൻ ദേശീയ ബാങ്ക് രൂപീകരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുന്ന്താ്ണ് ബിൽ

ഡൽഹി നിയമസഭയും ് എക്സിക്യൂട്ടീവും തമ്മിലുള്ള യോജിച്ച ബന്ധം പ്രോത്സാഹിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷൃമെന്ന് ബിൽ സഭയിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രി ജി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അധ്യക്ഷനായ മൂന്നംഗ സമിതിയാണ് പുരസ്ക്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്

മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന പ്രിയദർശൻ ചിത്രമാണ് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ആൻ എഞ്ചിനീയേഡ് ഡ്രീം എന്ന ഹിന്ദി ചിത്രം പുരസ്കാരം നേടി മികച്ച നടനുളള പുരസ്കാരം മനോജ് ബാജ്പേയ് ധനുഷ് എന്നിവർ പങ്കിട്ടു

രാഹുൽ റിജിനായർ സംവിധാനം ചെയ്ത കളളനോട്ടം മികച്ച മലയാള ചിത്രവും വെട്രിമാരൻ സംവിധാനം ചെയ്ത അസുരൻ മികച്ച തമിഴ്ചിത്രവുമായി

സജിൻബാബുവിന്റെ ബിരിയാണി പ്രത്യേക ജൂറി പരാമർശത്തുന്ന് അർഹമായി

ഹംഗേറിയൻ ടീമിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്